ഭീകരരെ കൈകാര്യം ചെയ്യാൻ ഒറ്റയ്ക്ക് കഴിയില്ലെങ്കിൽ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടാൽ ഇന്ത്യ സഹായം നൽകു മെന്ന് അദ്ദേഹം ജയ്പൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അമേരിക്കയുടെ സഹായത്തോടെയാണ് ഭീകരർക്കും താലിബാനുമെതിരെ അഫ്ഗാനിസ്ഥാൻ പോരാടുന്നത് അതുപോലെ ഭീകരർ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴി യില്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ സഹായം തേടട്ടെ എന്ന് ആഭ്യന്തര മന്ത്രി പറഞ്ഞു ഭീകരതയാണ് പ്രശ്നമെന്നും പാകിസ്ഥാൻ അത് ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്നും രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ അവിഭാജ്യഘടകമായിരിക്കുന്നിടത്തോളം കാലം ജമ്മുകശ്മീർ ഇന്ത്യക്ക് ഒരു പ്രശ്നമല്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി ് ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഗവൺമെന്റ് ഒരു ധൃതിയും കാട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു കോടതി പറയുന്നത് നടപ്പാ ക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ് വിധി നടപ്പാക്കാൻ അതി താൽപര്യം കാണിച്ചെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ചെറിയ താൽപര്യമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ കുറച്ച് സ്ത്രീകളെ ശബരിമല യിൽ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നുവെന്നും ജനുവരി ഒന്നിന് സൃഷ്ടി ക്കുന്ന വനിതാ മതിൽ സ്ത്രീകളെ അടിമകളാക്കുന്നവർക്കെതിരെയുള്ള താക്കീതാണെന്നും പിണറായി പറഞ്ഞു എൽ ഡി എഫ് സംഘടിപ്പിച്ച ബഹുജനസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഹൈക്കോടതി നിയോഗിച്ച ശബരിമല നിരീക്ഷണ സമിതി സ്ഥിതി ഗതികളും സൌകര്യങ്ങളും വിലയിരുത്താൻ ഇന്ന് നിലയ്ക്കലും പമ്പയും സന്ദർശിക്കും നാളെ സന്നിധാനം സന്ദർശിക്കുമെന്ന് സമിതി അംഗം ജസ്റ്റിസ് പി

രാമൻ അറിയിച്ചു

അളുവയിൽ സമിതിയുടെ ആദ്യയോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിലെ നിരോധനാജ്ഞ ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ് ് ് ് ് ് ് ് ശബരിമലയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും പൊലീസ് അതിക്രമങ്ങൾക്കുമെതിരെ ബി ജെ പിയുടെ പ്രക്ഷോഭം ഇന്ന് സെക്രട്ടേറി യറ്റിന് മുന്നിൽ തുടങ്ങും രാവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ

രാധാകൃഷ്ണൻ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിക്കും ദേശീയ ജന റൽ സെക്രട്ടറി സരോജ് പാണ്ഡെ എം

ഉദ്ഘാടനം ചെയ്യും

മണ്ഡല തീർത്ഥാടനകാലം ആരംഭിച്ച് രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഭക്തരുടെ വരവ് വർദ്ധിക്കാത്ത സാഹചര്യ ത്തിലാണ് ദേവസ്വം ബോർഡിന്റെ നീക്കമെന്ന് അധികൃതർ തിരുവനന്തപു രത്ത് വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറഞ്ഞു ഇതു സംബ ന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടാകും ശബരിമലയിലെ നിലവിലെ സംഭ വവികാസങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനകൃത്തും പുറത്തും ഭക്തർക്കുണ്ടായ ഭീതി അകറ്റുന്നതിനാണ് പരസ്യം നൽകുന്നതെന്നും അധി കൃതർ അറിയിച്ചു മണ്ഡല മകരവിളക്കു കാലത്ത് പ്രമ്പരാഗത തീർത്ഥാടനപാത വഴി യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് വനയാത്ര സുഖയാത്രയാക്കുന്നതിന് വനപാലകർ മാർഗ്ഗ നിർദ്ദേശങ്ങൾ നൽകിവരുന്നു പെരിയാർ വന്യജീവി സങ്കേതത്തിലൂടെ പുല്ലുമേടു വഴി സന്നിധാനത്തി ലെത്തുകയും ഇതു വഴി മടങ്ങുകയും ചെയ്യുന്ന തീർത്ഥാടകർ പ്ലാസ്റ്റിക്ക് കാരിബാഗുകൾ കുപ്പികൾ വസ്തുവകകൾ എന്നിവ വനത്തിൽ ഉപേക്ഷിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തുന്നുണ്ട്

സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വിത്തിലാണ് പൂങ്കാവനത്തിന്റെ പവിത്രത സംരക്ഷിച്ച് സുഖ തീർത്ഥാടനം ഉറപ്പാക്കുന്നത്

മണ്ഡല കാലത്തെ അപകടങ്ങൾ കുറക്കുന്നതിനും ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന തീർത്ഥാടകർക്ക് ക്ഷീണമകറ്റു ന്നതിനും വേണ്ടി ഹൈവേ പോലീസ് ആരംഭിച്ച സൌജന്യ ചുക്കുകാപ്പി വിതരണം മണ്ഡലകാലം മുഴുവൻ തുടരും

ഇന്ന് നാമജപയാത്ര നടക്കും സമാപനസമ്മേളനം സമിതി സ്പംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ

ശശികല ഉദ്ഘാടനം ചെയ്യും ശബരിമല യിൽ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ ഉടൻ പിൻവലിക്കണമെന്നാവശ്യ പ്പെട്ടാണ് നാമജപയാത്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് രണ്ടു ദിവസത്തെ ഗൾഫ് പര്യടനത്തിനായി ഇന്ന് ദുബൈയിൽ എത്തും

ഇതോടെ രണ്ടു മത്സരങ്ങളിൽ നിന്ന് നാലു പോയിന്റ് ലഭിച്ച ഇന്ത്യ പൂൾ സിയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു നാലു പോയിന്റുള്ള ബെൽജിയം ഗോൾ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ രണ്ടാം സ്ഥാനത്താണ്

പൂൾ സിയിൽ ഇന്നലെ നടന്ന ആദ്യമത്സരത്തിൽ കാനഡയും ദക്ഷിണാഫ്രിക്കയും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു

അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ ആർ

ഇന്ന് ഡൽഹി ഡൈനാമോ സ് മുംബൈ സിറ്റിയെ നേരിടും

റഷ്യൻ ലോകകപ്പിൽ ക്രൊയേഷ്യയെ ഫൈന ലിൽ എത്തിക്കുകയും ടൂർണ്ണമെന്റിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെടു കയും ചെയ്ത ലൂക്ക മോഡ്രിച്ചിനാണ് ഇത്തവണ സാധ്യത കല്പിക്കപ്പെടു ന്നത് ഇദ്ദേഹത്തോടൊപ്പം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഫ്രാൻസിന്റെ ആൻത്വോൻ ഗ്രീസ്മാനും അവസാന മൂന്നംഗ പട്ടികയിലുണ്ട് മികച്ച വനി തായുവതാരങ്ങൾക്കും ഇത്തവണ പുരസ്കാരം നൽകുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് ഭരണനേട്ടങ്ങളൊന്നും കാണിക്കാനില്ലാത്തതിനാൽ ബി ജെ പിയും സി പി ഐ എമ്മും ചേർന്ന് സംസ്ഥാനത്ത് കള്ളക്കളി കളിക്കുകയാണെന്ന് മുസ്തിം ലീഗ് ദേശീയ ജന റൽ സെക്രട്ടറി പി

സമാപന സമ്മേളനം മുസ്തിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു

യാത്ര ഇന്ന് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും

ഇടതുമുന്നണി നിയോജകമണ്ഡലം കമ്മറ്റി പാലക്കാട് ചിറ്റൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദശാബ്ദങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കുരിയാർകുറ്റി കാരപ്പാറ പദ്ധതി നടപ്പാക്കാൻ ചർച്ചകൾക്ക് തുടക്കമിട്ടതായും മന്ത്രി പറഞ്ഞു ട ് കാലാകാരന് ഒരിക്കലും വർഗീയവാദിയാകാൻ സാധിക്കില്ലെന്ന് മന്ത്രി എ

ബാലൻ പറഞ്ഞു ആചാര സംരക്ഷണത്തിന്റെ പേരിൽ മാന വിക സാഹോദര്യം ചോദ്യം ചെയ്യാൻ വരുന്നവർക്കെതിരെ കലാകാരന്മാർ ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു കേരള ഫോക്ലോർ അക്കാ ദമി അവാർഡുകൾ തലശ്ശേരിയിൽ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി

ഇന്ന് ലോക ഭിന്നശേഷി ദിനം

അവശരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിക്കാനും വേണ്ട സൃഹായം സ്വരൂപിക്കുകയാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഭിന്നശേഷി സൌഹൃദം ലക്ഷ്യമിട്ട് ബാരിയർ ഫ്രീ കേരള ടൂറിസം പദ്ധതി പാലക്കാട് ജില്ലയിലെ പത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടപ്പാക്കും നഗരത്തിലെ വാടിക ശിലാവാടിക ഉദ്യാനത്തിൽ എം

രാജേഷ് എം

പദ്ധതി ഉദ്ഘാടനം ചെയ്യും

കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പ്രധാന റെയിൽവെസ്റ്റേഷനുകൾക്ക് മുന്നിൽ ഇന്ന് ധർണ നടത്തും കാഴ്ചയില്ലാത്തവരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നും ഭിന്ന ശേഷിക്കാർക്കായി ട്രെയിനുകളിലെ കോച്ച് മധ്യഭാഗത്തേക്ക് മാറ്റണമെന്നും കാഴ്ചയില്ലാത്തവർക്ക് തിരിച്ചറിയാൻ കഴിയുംവിധം രൂപയും നാണയങ്ങളും പുറത്തിറക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ധർണ്ണ

ഷെയ്ക്ക് മുഹമ്മദ് കാരക്കുന്ന് വിതരണോദ്ഘാടനം ചെയ്തു